റാലികൾ സംഘടിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ടത്തിലേക്കുള്ള പ്രചാരണം ഊർജ്ജിതമാക്കി

ഇന്ന് പുറത്തീറക്കി

ജർമ്മനിയിലെ കോളോണിൽ നടന്ന ലോക ബോക്സിംഗിൽ ഇന്ത്യയുടെ മീനാകുമാരി മൈസ്നാമിന് സ്വർണ്ണം

ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിംങ്സിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനേയും നേരിടും

പി അധ്യുക്ഷൻ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാസ്ട്രി പ്രി

അധ്യക്ഷ മായാവതി എന്നിവർ പൊതുസമ്മേളനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട്

വ്യാഴാഴ്ചയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്

പ്രശ്ന ബാധിത ബൂത്തുകളിൽ സുരക്ഷ ശക്തമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തു കർണ്ണാടകയിൽ മികച്ച പോളിംഗ് ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർമാളുള്ളൂ പ്രെ ബോധവത്കരിക്കുന്ന തിനുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷ്ക്കുന്റ് നേതൃത്വത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു പ ന്യൂസ് ഡെസ്ക് ആകാശവ്ദീണി

മുൻ എം

ഭീഷ്മ ശങ്കർ ശാന്ത്കബിർ നഗർ മണ്ഡലത്തിൽ നിന്നും ഭദോഹി മണ്ഡലത്തിൽ നിന്ന് രംഗനാഥ് മിശ്രയും മത്സരിക്കും പ്രതാപ്ഗഡ് മണ്ഡലത്തിൽ നിന്നും അശോക് കുമാർ ത്രിപാഠിയും ഡോമാരിയാ ഗൻജ് മണ്ഡലത്തിൽ നിന്നും അഫ്താബ് ആലമും ബി

ഐകൃത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതുവത്സര ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി ്ട്വിറ്ററിൽ കുറിച്ചു

വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുമായി സമൂഹമാധ്യമത്തിലൂടെ സംവദിക്കുകയായിരുന്നു അവർ ഇന്ത്യൻ സാമ്പത്തിക സ്ഥിതി ഏറെ മെച്ചപ്പെട്ടുവെന്നും ശ്രീമതി സുഷമസ്വാരാജ് പറഞ്ഞു

ആയുഷ് മാൻ ഭാരത് പി

കിസാൻ ഗ്രാമീണ വൈദ്യുതീകരണം എന്നിവ ഇതിന് ഉദാഹരണമാണ് അഴിമതിയ്ക്കെതിരെയും ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങൾ അഭിനന്ദനീയമാണെന്നും പനഗിരിയ വാർത്താ ഏജൻസിയോട് പറഞ്ഞു

എസ്

ബി സി ഡി ബി

ഡി എ ഗവൺമെന്റിന്റെ മികച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ്

ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പാർല്ല്മെന്റ് ഹൌസിൽ അംബേദ്കർ പ്രതിമയ്ക്കു മുന്നിൽ നിർവധി പ്രമുഖർ ഇന്ന് പുഷ്പാർച്ചന നടത്തി അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശം നേടിയെടുക്കാൻ അംബേദ്കർ നടത്തിയ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്ത താണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുസ്മരിച്ചു ജനങ്ങളുടെ അവകാശത്തിനായി പോരാടിയ ധീരനായ വ്യക്തിയായിരുന്നു അംബേദ്കർ എന്ന് ഉപരാഷ്ട്രപതി എം

സാമൂഹൃനീതിക്കുവേണ്ടിയുള്ള അംബേദ്ക്കരുടെ പ്രവർത്തികൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു

ശ്രീലങ്കൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

ഫെബ്രുവരിയിൽ ഇത് തിരഞ്ഞെടുപ്പിനുശേഷം സ്ഥിരതയുള്ള ഗവൺമെന്റുണ്ടാകുമെന്ന ആത്മവിശ്വാസം വർദ്ധിച്ചതാകാം നിക്ഷേപം ഉയരാനുള്ള കാരണമായി സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു

രണ്ട് മണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കാനായെന്നും അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഡൽഹി അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചു തീപിടുത്തത്തിന്റെ കാരണം അറിവായിട്ടില്ല

തിരഞ്ഞെടുപ്പിയുൾേഷം പെരുമാറ്റച്ചട്ടത്തിൽ ഇളവുവരുന്നതോടെ ഗവ്ജൂർമെന്റിന് നേരിട്ട് ഉത്തരവിറക്കാം സഹകരണ സംഘങ്ങളിൽനിന്നും വാണിജൃബാങ്കുകളിൽനിന്നും എടുത്ത എല്ലാ വായ്പ്കൾക്കും ആനുകൂലൃം ലഭിക്കുംവിധമുള്ള പാക്കേജാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പു പ്രഖ്യാപനത്തിനുമുമ്പ് ഉത്തരവിറക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഫയൽ ഇനി വീണ്ടും ഡൽഹിക്കയച്ചാൽ തിരിച്ചടിയുണ്ടാകും കാർഷിക വായ്പകൾക്ക് മൊറട്ടോറിയം ഒക്ടോബർ വരെ നിലനിൽക്കുന്നുണ്ട്

തായ്ലന്റ് താരത്തെയാണ് ഇവർ പരാജയപ്പെടുത്തിയത്

ഇതോടെ ടൂർണമെന്റിൽ ഇന്ത്യ അഞ്ച് മെഡലുകൾ നേടി

എല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും വൈകിട്ട് നാലിനാണ് മത്സരം

ഇതിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല ആശിർവദിക്കലും കുരുത്തോല പ്രദക്ഷിണവും നടന്നു

ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം പീഡാസഹനം കുരിശുമരണം ഉയിർപ്പ് തിരുനാൾ എന്നിവയുൾപ്പെട്ട വിശുദ്ധ വാരാചരണ തിരുക്കർമ്മങ്ങൾക്കും ഇന്ന് തുടക്കമായി

പ്രത്യേക അടിയന്തിര കോടതികൾ ജയിലൽ അടച്ച എല്ലാ തടവുകാരെയും മോജിപ്പിക്കുവാനും രാത്രികാല കർഫ്യൂ പുനസ്ഥാപിക്കുന്നതിനും പുതിയ ഭരണകൂടം തീരുമാനിച്ചു

പ്രസിഡൻഡ് മുഹമ്മദ് അബ്ബാസാണ് ഇസ്തായേഹിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത്

പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ ഐകൃരാഷ്ട്രസഭ മധ്യേഷ്യൻ പ്രതിനിധി പ്രത്യാശ പ്രകടിപ്പിച്ചു സമാധാന ചർച്ചകൾക്ക് ഗവൺമെന്റ് രൂപീകരണം പ്രതീക്ഷ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു

വരും ദിവസങ്ങളിലും താപനിലയിൽ കുറവ് ഉണ്ടായേക്കില്ലെന്നാണ് റിപ്പോർട്ട്

കുറുപ്പംപടിയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ